ജനവിശ്വാസവും പിന്തുണയുമാണ് പ്രതിസന്ധികളെ മറികടക്കാൻ കരുത്തായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അടിത്തറയിട്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ

പ്രതിസന്ധികളിൽ ് അപ്പസരോചിത നടപടികളാണ് ന് പ്രധാനമന്ത്രിയുടേത്തെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്

രണ്ടാം മോദി സർക്കാർ ഇന്ന് ഒരു വർഷം തികയ്ക്കുന്നു പരിശ്രമവും കർത്തവ്യബോധവും വിജയത്തിലേക്ക് നയിക്കുമെന്നും പ്രതിസന്ധികളെ നേരിടാൻ താൻ രാപ്പകൽ കർമ്മനിരതനാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു പ്രതിസന്ധികൾ നേരിടുന്നതിൽ രാജ്യത്തെ ജനങ്ങളെയും അവരുടെ കഴിവുകളെയും വിശ്വസിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും പിന്തുണയുമാണ് പ്രതിസന്ധികളെ മറിക്കടക്കാനുള്ള തന്റെ കരുത്തെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

കേന്ദ്രത്തിൽ തുടർച്ചയായി രണ്ടാം തവണ അധികാരത്തിൽ എത്തിയശേഷം എൻ ഡിക്ക് സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭൂഗ്മായാണ് പ്രധാനമന്ത്രി ജനങ്ങൾക്ക് കത്തെഴുതിയത്

കൂടുതൽ വിവരങ്ങളുമായി ആമിന നജ്മ വോയ്സ് ജനങ്ങളുടെ പ്രതീക്ഷകളുടെയും അഭിലാഷങ്ങളുടെയും പൂർത്തീകരണത്തിനായി അതിവേഗം രാജ്യം മുന്നേറികൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് മഹാമാരി പ്രതിസന്ധി സൃഷ്ടിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഒരുവശത്ത് മികച്ച സാമ്പത്തിക സ്രോതസുകളും അത്യാധുനിക ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങളുമുള്ള ശക്തിയായിരിക്കുമ്പോഴും മറുവശത്ത് വൻ ജനസംഖ്യയും പരിമിതമായ വിഭവങ്ങൾ കൊണ്ടും നമ്മുടെ രാജ്യം പ്രശ്നങ്ങൾ നേരിടുകയാണ് ഇന്ത്യയിലെ കൊറോണ ബാധ ലോകത്തിന് പ്രശ്നമാകുമെന്ന് മറ്റു രാജ്യങ്ങൾ ഭയപ്പെട്ടു എന്നാൽ തികഞ്ഞ ആത്മവിശാസത്തോടെയും ഊർജ്ജസ്വലതയോടെയും ജനങ്ങൾ കൊറോണയെ നേരിട്ടത് നാം ലോകത്തിന് കാണിച്ചു കൊടുത്തു ലോകത്തെ ശക്തവും സമ്പന്നവുമായ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യക്കാരുടെ കൂട്ടായ ശക്തിയും കഴിവും സമാനതകളില്ലാത്തതാണെന്നും പ്രധാനമന്ത്രി കത്തിൽ വ്യക്തമാക്കി

സർജിക്കൽ സ്ട്രൈക്കിലൂടെ രാജ്യത്തിന്റെ കരുത്ത് കാണിച്ചു കൊടുക്കാനായി

കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും മുത്തലാഖ് നിരോധനവും പൌരത്യ ഭേദഗതി നിയമവും മികച്ചു നേട്ടങ്ങളാണെന്ന് പ്രധാനമന്ത്രി കത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

രണ്ടാം മോ്ദി സർക്കാർ ഒരു വർഷം വിജയകരമായി പൂർത്തീകരിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ടിറ്ററിലാണ് മന്ത്രി അമിത് ഷാ ഇക്കാര്യം കുറിച്ചത് സ്വാശ്രയ ഇന്ത്യയ്ക്ക് എൻ

സർക്കാർ അടിത്തറയിട്ടതായും പരിഷ്കാരങ്ങളും ജനക്ഷേമവും സമാന്തരമായി ഏകോപിപ്പിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ആറ് വർഷത്തെ ഭരണമെന്നും ശ്രീ

സത്യസന്ധമായ നേതൃത്വത്തിന്റെയും കഠിനാധാനത്തിന്റേയും പ്രതിഫലനമായ ശ്രീ നരേന്ദ്രമോദിയിൽ രാജ്യത്തെ പൌരന്മാർക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്നും ശ്രീ അമിത് ഷാ പറഞ്ഞു

കോർപ്പറേറ്റ് മേഖലയിലെ പെരുമാറ്റ രീതികൾ വൃക്തിപരമായ കഴിവുകൾ വികസിപ്പിക്കൽ അവതരണ ശേഷി വർദ്ധിപ്പിക്കൽ തുടങ്ങിയവയിലാണ് ് പരിശീലനം നൽകുന്നത് നാഷണൽ എംപ്പോയ്മെന്റ് സർവ്വീസ് ആധുനികവത്കരിക്കുന്നതിനാണ് തൊഴിൽ മന്ത്രാലയം എൻ സി എസ്

ഇതിലൂടെ തൊഴിൽ കണ്ടെത്തൽ തൊഴിൽ സംബന്ധമായ കൌൺസിലിംഗ് നൈപുണ്യ വികസന കോഴ്സുകൾ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ ലഭൃമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്

വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർ യാത്രക്കിടയിൽ മരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് മന്ത്രാലയം ഈ അഭ്യർത്ഥന നടത്തിയത് വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവരെ സ്വന്തം നാട്ടിലെത്തിക്കുന്നതിനായി റെയിൽവേ മന്ത്രാലയം എല്ലാ ദിവസവും പ്രത്യേക ശ്രമിക് ട്രെയിനുകൾ സർവ്വീസ് നടത്തുന്നുണ്ട്

പ്രതിസന്ധികളിൽ പ്രധാനമന്ത്രി കൈക്കൊണ്ട നടപടികൾ അവസരോചിതമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു

വോയ്സ് തക്കസമയത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയുടെ നടപടിയാണ് കൊറോണ വൈറസ് മഹാമാരിക്കെതിരെ പൊരുതുന്നതിൽ നിർണ്ണായകമായതെന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി പ്രതിസന്ധി ഘട്ടത്തിൽ ബ്ദാങ്ക് അക്കൌണ്ടുകളിലേക്ക് പണം നൽകിയതും സൌജന്യമായി ഭക്ഷ്യൂധാന്യങ്ങൾ എത്തിച്ചതും ദുരിതത്തിലായിരുന്ന കർഷകർക്കൂർപ്പ് തൊഴിലാളികൾക്കും ആശാസമായി കൂടാതെ ഉല്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ കർഷകർക്ക് രാജ്യത്തെവിടെയും വിൽക്കാന്മൂള്ള് അനുമതി നൽകിയതും തൊഴിലാളികൾക്ക് ഒറ്റ റ്റേഷൻ കാർഡ് ഏർപ്പെടുത്തിയതും സൂക്ഷ്മ ചെറുകിട ഇടത്തരി വ്യവസായ സംരംഭങ്ങളുടെ നിർവചനങ്ങൾ തന്നെ മ്മാറ്റീർയെഴുതിയുമടക്കമുള്ള തീരുമാനങ്ങൾ വരും ദശകങ്ങളിലെ ന്ട്രികകല്പുകളാകുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു സൈനിക മേഖലയിൽ ആധുനികവത്കരണം നടത്തി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സി

സ്വകാര്യ മേഖലയുമായുള്ള സഹകരണം കൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ ഉല്പാദനം വർദ്ധിച്ചു

അയോധ്യ കേസിലെ സുപ്രീം കോടതി വിധിയ്ക്ക് ശേഷവും മതമൈത്രി നിലനിർത്താനായിയെന്നതും എടുത്തു പറയേണ്ട നേട്ടമാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രധാനമന്ത്രിയുട പ്രഭാഷണം കഴിഞ്ഞയുടൻ ആകാശവാണിയുടെ കേരളനിലയങ്ങളിൽ അതിന്റെ മലയാള പരിഭാഷ കേൾക്കാം

രോഗബാധയിൽ അമേരിക്കയാണ് മൂന്നീൽ

രാജ്യത്ത് ഒറ്റ ദിവസം ഇത്രയധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാദ്യമായാണ്

സമ്പർക്കത്തിലൂടെ ഒരാൾക്കും രോഗബാധയുണ്ടായി